ഏതു വിഷയ ത്തിലും ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടമൺ കൊച്ചി പവർ ഹൈവേ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി

ബോബ്ഡെ ഇന്ന് ചുമതലയേൽക്കും മെയിൽ എക്സ്പ്രസ് പ്രീമിയം ട്രെയിനുകളിലെ ഭക്ഷണവില ഇന്നു

പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം

ഏതു വിഷയത്തിലും ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാണെന്ന് ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പുനൽകി സഭയുടെ പ്രധാന ദൌത്യം ചർച്ചയും സംവാദവുമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ സർവകക്ഷിയോഗത്തിൽ പങ്കെടുത്തു സാമ്പത്തിക മാന്ദ്യം തൊഴിലില്ലായ്മ കാർഷിക പ്രശ്നങ്ങൾ തുടങ്ങിയവ ഈ സമ്മേളന കാലത്ത് ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കശ്മീരിൽ തടങ്കലിൽ കഴിയുന്ന ലോക്സഭാ അംഗം ഫാറൂഖ് അബ്ദു ള്ളയെയും തിഹാർ ജയിലിൽ കഴിയുന്ന മുൻ ധനമന്ത്രി പി ചിദംബര്കത്തയും പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് ആവശ്യപ്പെട്ടു ് ഇടമൺ കൊച്ചി പവർ ഹൈവേ വൈകിട്ട് അടൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും തമിഴ്നാട്ടിലെ കൂടംകുളം ആണ വനിലയത്തിൽ നിന്ന് കേരളത്തിലേക്ക് പരമാവധി പ്രസരണ നഷ്ടം കുറച്ച് വൈദ്യുതി എത്തിക്കുന്ന പദ്ധതിയാണിത്

ടാഗോർ തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണ റായി വിജയൻ രണ്ടു വർഷം നീളുന്ന കാമ്പയ്യിൻ ഉദ്ഘാടനം ചെയ്യും

ശ്ശീന്ദ്രൻ ഉച്ചയ്ക്ക് തിരുവന ന്തപുരത്ത് ചർച്ച നടത്തും നിയമസഭയിൽ മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച

മരടിലെ പൊളിക്കുന്ന ഫ്ളാറ്റുകളുടെ സമീപവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ ഇന്ന് മന്ത്രിതല യോഗം ചേരും തിരുവനന്തപുരത്ത് മന്ത്രി എ

റേഷൻ കാർഡ് ഉടമകൾക്ക് രാജ്യത്ത് എവിടെ നിന്നും റേഷൻ വാങ്ങാൻ സൌകര്യമൊരുക്കുന്ന സംവിധാനം പുരോഗമിക്കുകയാണെന്ന് മന്ത്രി പി

ആദ്യഘട്ടത്തിൽ കേരള കർണാടക സംസ്ഥാനങ്ങൾ ചേർത്ത് ക്ലസ്റ്റർ രൂപീകരിച്ചായിരിക്കും പ്രവർത്ത നം പൊതുവിതരണ വകുപ്പ് സംഘടിപ്പിച്ച ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം മാധ്യമ ശില്പശാല കൊച്ചി പ്രസ്ക്ലബ്ബിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ബോബ്ഡെ ഇന്ന് ചുമതലയേൽക്കും രാവിലെ ഒമ്പതരയ്ക്ക് രാഷ്ട്ര പതി ഭവനിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ബോബ്ഡെയ്ക്ക് സത്യവാ ചകം ചൊല്ലിക്കൊടുക്കും ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഇന്നലെ വിരമിച്ച ഒഴിവിലാണ് അദ്ദേഹത്തിന്റെ നിയമനം

അയോധ്യ തർക്ക ഭൂമിയിലെ സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകാൻ അഖിലേന്ത്യാ മുസ്തിം വൃക്തി നിയമ ബോർഡും ജാമിയത്ത് ഉലമ ഹിന്ദും തീരുമാനിച്ചു ശരിയത്ത് നിയമപ്രകാരം പള്ളി ഭൂമി ഉപേക്ഷിക്കാനാവില്ലെന്ന വസ്തുത മുൻനിർത്തിയായിരിക്കും പുനഃപരിശോധനാ ഹർജി ഇന്നലെ ലക്നൌവിൽ ചേർന്ന യോഗത്തിൽ പള്ളി നിർമ്മാണത്തിന് പകരം ഭൂമി വാങ്ങേണ്ടതില്ലെന്നും തീരുമാനമായി ് ് ് ് ് ് ് മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെയും പ്രീമിയം ട്രെയിനു കളിലെയും ഭക്ഷണത്തിന് ഇന്നുമുതൽ വില് കൂടും

ണത്തിൽ അമ്പേഷണസംഘം ഇന്ന് വീണ്ടും കാമ്പസിൽ തെളിവെടുക്കും മരണസമയത്ത് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ മൊഴി സംഘം ശേഖരിക്കും ആരോപണവിധേയനായ അധ്യാപകൻ സുദർശൻ പത്മനാഭനെയും സംഘം ചോദ്യം ചെയ്തേക്കും ഫാത്തിമയുടെ മരണ ത്തിൽ നടപടി വേഗത്തിലാക്കണമെന്നാവശൃപ്പെട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥി കൾ ഐ ഐ ടി ഡയറക്ടർക്ക് നിവേദനം നൽകി

അതിനി ടെ ഫാത്തിമ ലത്തീഫിന്റെ കുടുംബം ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും

ജൂനിയർ ആൺകുട്ടികളുടെ അഞ്ച് കിലോമീറ്റർ നടത്തമത്സരമാണ് അല്പം മുമ്പ് തുടങ്ങിയത്

സ്കൂൾ വിഭാഗത്തിൽ പാലക്കാട് കുമരംപുത്തൂർ കെ

കോതമംഗലം മാർ ബേസിൽ ഹയർസെക്കൻഡറി രണ്ടാം സ്ഥാനത്തുണ്ട്

ആദ്യദിവസം വടംവലി വോളിബോൾ മത്സ രങ്ങളാണ് നടന്നത് തീരവാസികളുടെ കായിക പരിശീലനത്തിന് പൊന്നാനി ഹാർബറിൽ മൈതാനം നിർമ്മിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു

ആശ്രയ സ്റ്റേഡിയത്തിൽ തുടങ്ങും രണ്ടു ദിവസത്തെ പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളിൽ കേരളം ആന്ധ്ര പ്രദേശിനെ നേരിടും

സംസ്ഥാനമായി കേരളം മാറിയെന്ന് മന്ത്രി പി

മരുന്നു വാങ്ങാൻ അത്രതന്നെ തുക ഗവൺമെന്റ് ചെലവഴിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ലഹരിമുക്ത നവകേരളം പരിപാടി യുടെ ജില്ലാതല ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

കവുമായ പ്രവർത്തനങ്ങളിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് മന്ത്രി കെ രാജു അറിയിച്ചു

ഇടുക്കി ജില്ലയിലെ തീവ്ര ബോധവൽക്കരണ പരിപാടി അടിമാലിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്കായി കോഴിക്കോട് റെയിൽവെ സ്റ്റേഷനിൽ ആരംഭിക്കുന്ന ഫെസിലിറ്റേഷൻ സെന്റർ ഉച്ചയ്ക്ക് മന്ത്രി ടി

രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഇവരുടെ സൌജന്യ ഇൻഷു റൻസ് പദ്ധതി ആവാസ് ന്റെ വർദ്ധിപ്പിച്ച ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനവും മന്ത്രി നടത്തും

ആലപ്പുഴ കുടിവെള്ള പദ്ധതിയിലെ അഴിമതി സിബിഐ അനേ ഷിക്കണമെന്ന് പ്രതിപക്ഷനേതാവ് രമേഷ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഖജ നാവിലെ പണം കൊള്ളയടിക്കുന്നവരെ സംരക്ഷിക്കുന്ന ഗവൺ മെന്റാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ആലപ്പുഴ കുടിവെള്ള പദ്ധതിയിലെ അഴിമതിക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ കൺവൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല

പാലാരിവട്ടം മേൽപാല നിർമ്മാണത്തിലെ ക്രമക്കേടുമായി ബന്ധ പ്പെട്ട് മുൻമന്ത്രി വി

ഇബ്രാഹിം കുഞ്ഞിനെതിരായ അമ്പേഷണത്തിന് ഗവൺമെന്റ് ഗവർണറുടെ അനുമതി തേടി മുൻ മന്ത്രിക്കെതിരായ കണ്ടെ ത്തലുകളും ടി

സൂരജ് നൽകിയ മൊഴിയും അടങ്ങുന്ന റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്

നൂറോളം ആദിവാസി കലാകാരന്മാർ വിവിധ കലാരൂപങ്ങൾ മേളയിൽ അവതരിപ്പിച്ചു സംസ്ഥാന ലൈബ്രറി കൌൺസിലും യുവജന കമ്മീഷനും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്

കോഴിക്കോട് പന്തീരാങ്കാവ് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് യു എ പി എ ചുമത്തിയ വിദ്യാർത്ഥികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും ഇരുവരുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി രാവിലെ പരിഗണിക്കും കോഴിക്കോട് ജില്ലാ കോടതിയിൽ രണ്ടുപേരെയും ഹാജ രാക്കും

കൂടത്തായി കൊലപാതക പരമ്പരയിലെ മാത്യു മഞ്ചാടിയിൽ കേസിൽ രണ്ടാം പ്രതി എം

മാത്യുവിനെ രാവിലെ താമരശ്ശേരി കോട തിയിൽ ഹാജരാക്കി പൊലീസ് കസ്റ്റഡി അപേക്ഷ നൽകും റോയ് കൊല ക്കേസിലെ ഒന്നാം പ്രതി ജോളിയുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി ഇന്ന് പരിഗണിക്കും

കേന്ദ്ര ഗതാഗത വകുപ്പ് ബദൽപാതാ നിർദ്ദേശം ഉന്നയിച്ച സാഹചര്യത്തിൽ നാക്പാക്ക് അംഗീകരിച്ച ബൈപ്പാസ് നിർമ്മാണം നടപ്പാക്കണമെന്ന് അവർ ആവശൃപ്പെട്ടു

കാൻസർ ബോധവൽക്കരണത്തിനായി ആകാശവാണി കണ്ണൂർ നിലയവും മലബാർ കാൻസർ കെയർ സൊസൈറ്റിയും ചേർന്ന് കണ്ണൂർ ജില്ലയിലെ കോളേജുകളിൽ നടത്തിയ കാൻ കിസ് മത്സരത്തിന്റെ ഫൈനൽ ഇന്ന്

കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ സ്റ്റേജിതര മത്സരങ്ങൾ നാളെ തുടങ്ങും

വിശപ്പ് രഹിത മൂന്നാർ പദ്ധതി ഇടുക്കി ജില്ലാ കലക്ടർ എച്ച്

തെരഞ്ഞെടുത്ത അഞ്ച് ഹോട്ടലുകൾ വഴിയാണ് ആവശ്യക്കാർക്ക് സൌജന്യ ഭക്ഷണം വിതരണം ചെയ്യുന്നത്